വെടിയുതിർത്തു

ഇടയാക്കിയേക്കാമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ

ഇന്ന് മുഖ്യമന്ത്രിയെ കാണും

കശ്മീരിൽ മനുഷ്യാവകാശലംഘനം നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൌൺസിലിൽ പാകിസ്ഥാൻ പ്രമേയത്തിന് ഒരു രാജ്യത്തിന്റെയും പിന്തുണയില്ല

ഇതോടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാൻ വീണ്ടും ഒറ്റപ്പെട്ടു

ഇന്നലെ വൈകിട്ടു് പൂഞ്ച് ജില്ലയിലെ ഷാഹ്പൂർ കെർണി സെക്ടറുകളിലാണ് മ്മേർട്ടോറുകളും ഷെല്ലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് ഇത്ത്യൻ സേന ശക്തമായ പ്രത്യാക്രമണം നടത്തി

ജി

ജമ്മുകശ്മീരിൽ സമാധാനത്തിനായി പൊതുജനങ്ങളുമായി ചേർന്ന് നിരന്തര പരിശ്രമം നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു ഡിവിഷനിലെ ഉധംപൂർ റിയാസി ജില്ലകളിൽ സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം ഏതു വെല്ലുവിളിയും നേരിടാൻ സുരക്ഷാസേന സജ്ജമാണെന്നും ജമ്മു കശ്മീർ ഡിജിപി അറിയിച്ചു

പൊതുസഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനാണ് പ്രധാനമന്ത്രി അമേരിക്കയിലെത്തുന്നത്

ഞായറാഴ്ച ഹൂസ്റ്റണിൽ നടക്കുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ യോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുമെന്ന് വിദേശകാരൃ സെക്രട്ടറി വിജയ് ഗോഖലെ അറിയിച്ചു

മോദിയോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കെടുക്കും

വിവിധ രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കും സ്വച്ഛഭാരത് അഭിയാന് നേതൃത്വം നല്കിയതിന് ബിൽ ആന്റ് മെലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേഷൻ നല്കുന്ന ഗ്ലോബൽ ഗോൾകീപ്പേഴ്സ് അവാർഡ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങും ഹൂസ്റ്റണിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത് ടെക്സാസ് ഇന്ത്യാ ഫോറമാണ് സംഘാടകർ

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ്ക്ക്ട്ട്ടയിഡു എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

ഉന്നതതല സംഘവും വാണിജ്യപ്രതിനിധികളും മംഗോളിയൻ പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്

മുംബൈയിൽ സാമ്പത്തിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു റിസർവ് ബാങ്ക് ഗവർണർ സമ്പദ്വ്യവസ്ഥയിൽ സബ്സിഡിയുടെ സ്വാധീനം ദീർഘകാല അടിസ്ഥാനത്തിൽ മാത്രമേ കാണാനാവൂ എന്നും ശ്രീ

അടുത്ത ഒരു വർഷത്തിൽ പണപ്പെരുപ്പം നാല് ശതമാനത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

പുതിയ ഇടപാടുകാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി ബാങ്കുകളോട് ആവശ്യപ്പെട്ടു

പ്രതിരോധ ഗവേഷണകേന്ദ്രമായ ഡ്രി ആർ ഡി

മിസൈലിന്റെ വിജയത്തിൽ ഡി

ഇതു സംബന്ധിച്ച് കേന്ദ്ര ഉപദേശക ബോർഡിന്റെ മൂന്നാമത് യോഗം സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി തവർചന്ദ് ഗഹ്ലോട്ടിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു

ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ധ്യക്ഷനായ സമിതിയുടെ യോഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ റെയിൽവേ വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ വ്യോമയാന മന്ത്രി ഹർദ്ദീപ് സിങ് പുരി എന്നിവർ സംബന്ധിച്ചു ക്രിയാത്മകമായി പല കാര്യങ്ങളും ചർച്ച ചെയ്തുവെന്ന് മന്ത്രി ഹർദ്ദീപ്സിങ് പുരി അറിയിച്ചു

ഗർഭിണികൾക്ക് അത്യാവശ്യ ചെലവുകൾക്കായി പണം അവരുടെ അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന പൃദ്ധതിയാണിത്

ഇസ്ലാമിക രീതിയിലുള്ള നിക്ഷേപ പദ്ധതിയിലൂടെ ലാഭം ഉണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് രൂപീകരിച്ചു കമ്പനി ഒരു ലക്ഷത്തോളം പേരെ വഞ്ചിച്ച കേസിലാണ് ചോദ്യം ചെയ്യൽ

കർണ്ണാടക മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് സമീർ അഹമ്മദ്ഖാൻ തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ മൻസൂർഖാനും മറ്റുള്ളവർക്കുമെതിരെ സിബിഐ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു

മുംബൈയിൽ വ്യാപാര ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തങ്ങളെ സ്വാഗതം ചെയ്യുന്നതും ജീവനക്കാരോട് ആദരം കാട്ടുന്നതുമായ ഇടങ്ങളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് പ്രമുഖ കമ്പനികൾ ലക്ഷ്യമിടുന്നത്

ഫിൽ മുർഫി അഭിപ്രായപ്പെട്ടു

എങ്കിലൂർ അവശേഷിക്കുന്നവരെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ്

ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ബി സായ് പ്രണീത് കാർട്ടർ ഫൈനലിൽ കളിക്കും

ലോകചാമ്പ്യൻഷിപ്പിൽ വെങ്കലജേതാവായ സായ്പ്രണീത് മാത്രമാണ് ഇനി ഇന്ത്യയെ പ്രതിനിധീകരിക്കാനുള്ളത് പ്രീ ക്വാർട്ടറിൽ ചൈനീസ് താരത്തെയാണ് സായ് കീഴടക്കിയത് ഇന്ത്യയുടെ പി

സിന്ധുവും പി

പ്രളയക്കെടുതിയുണ്ടായ വിവിധ ജില്ലകളിൽ സന്ദർശനം നടത്തി നാശനഷ്ടം വിലയിരുത്തിയ ശേഷമാണ് സംഘം തിരുവനന്തപുരത്ത് എത്തി മുഖ്യമന്ത്രിയെ കാണുന്നത്

നാളെ കൂടി പരസ്യപ്രപ്പിട്ടുണ്ത്തിന് ഔദ്യോഗികമായി അനുമതിയുണ്ടെങ്കിലും ശ്രീനാരായണുകുരും സ്മാധി പ്രമാണിച്ച് പരസ്യപ്രചാരണം ഒഴിവാക്കാൻ മൂന്നു മുന്നണികളും തീരുമാനിക്കുകയായിരുന്നു